കേരളത്തിൽ മൂന്നു പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു

തേടാൻ ഗവർണർ ലാൽജി ടണ്ടൻ നിർദ്ദേശിച്ചു

പൊതുജന ആരോഗ്യം ഉറപ്പാക്കാൻ എല്ലാ ഉപാധികളും സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി ട്വിറ്റർ സന്ദേശത്തിൽ അറിയിച്ചു ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് ആരോഗ്യ ജീവനക്കാരും രോഗബാധ ചെറുക്കുന്നതിനായി മികച്ച രീതിയിലുള്ള പരിശ്രമങ്ങളാണ് നടത്തുന്നത് രോഗലക്ഷണങ്ങൾ കാണിക്കുന്നവർക്ക് മെച്ചപ്പെട്ട പരിചരണം ലഭ്യമാക്കുന്ന കാര്യം ഉറപ്പു വരുത്തിയിട്ടുണ്ട് അത്യാവശ്യമില്ലാത്ത യാത്രകളും കൂടിച്ചേരലുകളും ഒഴിവാക്കാനും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു

ഇതു സംബന്ധിച്ച് സംസ്ഥാന സർക്കാരുകൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകി

കേരളം ഒഡിഷ ജമ്മു കശ്മീർ ലഡാക്ക് എണ്ണിപ്പിടങ്ങളിൽ നിന്നായി നാല് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു ക്യാബിനറ്റ് സെക്രട്ടറിയുടെ അദ്ധ്യക്ഷതയിൽ ചേർന്ന കൃമ്മിറ്റി പ്രതിരോധ നടപടികൾ സംബന്ധിച്ച് വിലയിരുത്തിയതായി ആരോഗ്യമന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി ലവ് അഗർവാൾ അറിയിച്ചു കമ്മിറ്റികളുടെ നിർദ്ദേശപ്രകാരമാണ് മന്ത്രിതല സമിതിയുടെ ഏഴാമത്തെ യോഗം സാമൂഹ്യമായ അകൽച്ച പാലിക്കുന്നത് പ്രതിരോധ മാർഗ്ഗമായി സ്വീകരിച്ചത്

വൈറസ് ബാധ പ്രതിരോധിക്കുന്നതിനും തടയുന്നതിനുമുള്ള നടപടികൾ ആരോഗ്യമന്ത്രി ഹർഷ്വർദ്ധന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി കൊറോണ ബാധിത രാജ്യങ്ങളായ യു എ

സിവിൽ വ്യോമയാന മന്ത്രി ഹർദ്ദീപ് സിങ് പുരി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ആരോഗ്യ സഹമന്ത്രി അശ്വിനികുമാർ ചൌബെ തുടങ്ങിയവർ സംബന്ധിച്ചു

സുധീർ ഭാർഗവ ഒഴിഞ്ഞ സ്ഥാനത്താണ് ബിമൽ ജുൽക്കയെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിച്ചത് പുതിയ കേന്ദ്രഭരണപ്രദേശങ്ങളായ ജമ്മുകശ്മീർ ലഡാക്ക് എന്നിവിടങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പുതിയ നടപടികൾ സംബന്ധിച്ച് ശ്രീ ജുൽക്ക കേന്ദ്രമന്ത്രിയുമായി ചർച്ച നടത്തി

ഇതോടെ രാജ്യത്തെ മൂന്ന് സംസ്കൃത സർവ്വകലാശാലകൾക്ക് കേന്ദ്ര സർവ്വകലാശാല പദവി ലഭിക്കും

സംസ്കൃത സാഹിത്യം ഇന്ത്യയുടെ വിലമതിക്കാനാകാത്ത സ്വത്തും തനതായ പൈതൃകവു മാണെന്ന് ചർച്ചക്ക് മറുപടി പറയവെ കേന്ദ്രമന്ത്രി രമേഷ് പൊക്രിയാൽ നിഷാങ്ക് സൂചിപ്പിച്ചു

ജി പി ദിൽബാഗ് സിംഗ് ഷോപ്പിയാൻ അനന്തനാഗ് എന്നിവിടങ്ങളിലെ സുരക്ഷാ സംവിധാനങ്ങൾ അവലോകനം ചെയ്യവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് തീവ്രവാദം ചെറുക്കുന്നതിൽ സേനകളുടെ കൂട്ടായ പരിശ്രമത്തെ ശ്രീ ദിൽബാഗ് സിങ് അഭിനന്ദിച്ചു

പുട്ടപ്പയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രീീബിഎസ് യദ്യൂരപ്പ അഗാധ ദുഃഖം രേഖപ്പെടുത്തി

ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേർ മരിച്ചത് ഇറ്റലിയിലാണ്

മൊത്തം ഏഴായിരത്തി ഏഴ് പേരാണ് ഇതുവരെ മരിച്ചത്

ഏറ്റവും കൂടുതൽ മരണനിരക്ക് റിപ്പോർട്ട് ചെയ്തത് ചൈനയിലും രണ്ടാമതായി ഇറ്റലിയുമാണ്

ആദ്യത്തെയാൾക്ക് ഇന്നലെ വാക്സിൻ നൽകി

കണ്ണൂർ കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം വിമാനത്താവള മേധാവികൾ വീഡിയോ കോൺഫറൻസിംഗിലൂടെയുളള ചർച്ചയിൽ പങ്കെടുത്തു

യുദ്ധകാലത്തല്ലാതെ വിരളമായി മാത്രം കണ്ടിട്ടുള്ള കടുത്ത നിയന്ത്രണങ്ങളാണ് സർക്കാരുകൾക്ക് ഏർപ്പെടുത്തേണ്ടി വരുന്നതെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അഥനോം ഗബ്രിയേസസ് പറഞ്ഞു കഴിഞ്ഞ ഡിസംബറിൽ ചൈനയിലാണ് രോഗം റിപ്പോർട്ട് ചെയ്തത് ഇപ്പോഴത് ലോകമാകെ പടർന്നിരിക്കുന്നു മാനവരാശിയുടെ മികവും കഴിവുകേടും ബോധ്യപ്പെടുത്തുന്നതാണ് ഇത്തരം പ്രതിസന്ധികളെന്ന് അദ്ദേഹം പറഞ്ഞു

ഇതേത്തുടർൻ് ക്ടിയ്മസഭയുടെ ആദ്യ ദിവസമായ ഇന്നലെ നടത്താൻ നിശ്ചയിച്ചിരുന്നു് പ്പിശാസവോട്ടെടുപ്പ് മാറ്റിവയ്ക്കുകയായിരുന്നു

എൽ

കൂടുതൽ രാജ്യങ്ങൾ അടച്ചുപൂട്ടുകയും ആഗോള സമ്പദ് വ്യവസ്ഥ നിശ്ചലാവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്തതോടെ അടിയന്തിരവും സംയുക്തവുമായ ഇടപെടൽ അനിവാര്യമാണെന്ന് യോഗം വിലയിരുത്തി